ആദ്യദിനം ഇന്ത്യയ്ക്ക് അഞ്ച് മെഡലുകൾ

പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു

മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കുങ്ങളുട് പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കനത്തു സ്ഥുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്

ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്

പോളിങ് സുഗമമാക്കാനുള്ള സുരക്ഷ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

ഇതുകൂടാതെ അർദ്ധസേന വിഭാഗങ്ങളായ സി

എഫ് ബി

എഫ് സി ഐ എസ്

കേന്ദ്രഭരണ പ്രദേശമായ ഛണ്ഡിഗഡിലും വോട്ടെടുപ്പ് അവസാനഘട്ടത്തിലാണ്

മുൻ മുഖ്യമന്ത്രിയും ഡൽഹി പി സി സി അദ്ധ്യക്ഷയുമായ ഷീല ദീക്ഷിത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് ജനവിധി തേടും മുൻ പി സി

ഡൽഹിയിൽ നാലും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥിയെയുമാണ് പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രി ഹർഷ്വർദ്ധൻ ഡൽഹിയിലെ പ്രിന്ദ്നിചൌക്കിൽ നിന്ന് വീണ്ടും ജനവിധി തേടും ഡൽഹി ബിജെപി പ്രസിഡന്റ് മനോജ് തിവാരി വടക്കുകിഴക്കൻ ഡൽഹിയിൽ മൽസരിക്കും

മൂന്ന് ക്രിസ്ത്യൻ പള്ളികളിലും ആഡംബര ഹോട്ടലുകളിലും പാർപ്പിട സമുച്ചയങ്ങളിലുമായുമുണ്ടായ സ്ഫോടന പരമ്പരകളിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത്

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ ഹോൾഡ് വോയിസ് ശ്രീലങ്കയിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ അധ്യക്ഷതയിൽ ലങ്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ ഇന്ന് യോഗം ചേരും സംഭവത്തെ കുറിച്ച് സുപ്രീംകോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്ന് പ്രസിഡന്റ് പുറഞ്ഞു രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശ്രീലങ്കൻ പൌരത്വമുള്ള റസീനയുടെ മൃതദേഹം കേരളത്തിൽ കൊണ്ടുവരാൻ എല്ലാ സഹായവും ലഭ്യമാക്കാമെന്ന് നോർക്ക അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ നോർക്ക അധികൃതർ ഹൈക്കമ്മിഷണറുമായും ബന്ധുക്കളുമായും ബന്ധപ്പെടുകയും ചെയ്യയ്തു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് നിർദ്ദേശം നൽകിയത്

ആപ്പിൽ പോണോഗ്രഫി അടക്കമുള്ള ഉള്ളടക്കങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്രത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു

ചിത്തിര പൌർണ്ണമി വിശേഷവുമായി ബന്ധപ്പെട്ട് കൈനീട്ടം നൽകുന്നതിനിടെയുണ്ടായ ഉന്തും തള്ളിലുമാണ് അപകടമുണ്ടായത്

മികച്ച സമ്പന്നമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ നടപ്പിലാക്കുന്നതിൽ ഗവൺമെന്റിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ബംഗ്ലാദേശ് ഇലക്ഷൻ കമ്മീഷന്റെ സെക്രട്ടറി ഹെലാലുദ്ദീൻ അഹമ്മദ് അറിയിച്ചു

സ്വർണ്ണവില വർദ്ധിച്ചു

ജാവലിൻ ത്രോയിൽ അന്നുറാണിയും മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചെയ്സിൽ അവിനാശ് സ്ട്രെബിളും വെള്ളി നേടി

രാത്രി എട്ടിന് ജയ്പൂരിലാണ് മത്സരം